വാർത്തകൾ വിശദമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി മാരിടൈം ഇന്ത്യ ഉച്ചകോടി ഇന്ന് വീഡിയോ കോൺഫറൻസിങ്ങിലൂടെ ഉദ്ഘാടനം ചെയ്യും കേന്ദ്ര തുറമുഖം ഷിപ്പിങ്ങ് ജലപാത മന്ത്രാലയത്തിന്റെ ആഭിമുഖ്യത്തിലാണ് വെർച്വലായി മൂന്ന് ദിവസത്തെ ഉച്ചകോടി സംഘടിപ്പിക്കുന്നത് അടുത്ത ദശകത്തിൽ രാജ്യത്തിന്റെ മാരിടൈം മേഖലയുടെ മാർഗരേഖക്ക് ഉച്ചകോടി രൂപം നൽകും ആഗോള മാരിടൈം മേഖലയിൽ രാജ്യത്തെ മുന്നിലെത്തിക്കാൻ പ്രവർത്തനവും ഉച്ചകോടിയിൽ ഉണ്ടാകും നിരവധി രാജ്യങ്ങളിലെ പ്രമുഖ പ്രഭാഷകർ ഉച്ചകോടിയിൽ പങ്കെടുക്കും ഇന്ത്യൻ മാരിടൈം രംഗത്ത് നിക്ഷേപ സാധ്യതകളും നിക്ഷേപങ്ങളും തേടുന്ന ഉച്ചകോടിയിൽ ഡെൻമാർക്കാണ് പങ്കാളി രാജ്യം രുര സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിന് നാമനിർദേശ പത്രിക സമർപ്പണം ആരംഭിക്കാൻ പത്ത് ദിവസം മാത്രം ബാക്കി നിൽക്കെ മുന്നണികൾ സീറ്റ് വിഭജന ചർച്ച കൂടുതൽ ഊർജ്ജിതമാക്കി

കോൺഗ്രസും കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗവും തമ്മിലെ സീറ്റ് ധാരണ സംബന്ധിച്ച് ഇന്നലെയും തീരുമാനത്തിൽ എത്താനായില്ല ഇന്ന് ചർച്ച പൂർത്തിയാക്കി നാളെ ഔദ്യോഗിക പ്രഖ്യാപനം നടത്താനാണ് ശ്രമം സിപിഐഎം എൽഡിഎഫ് കക്ഷികളുമായി ഉഭയകക്ഷി ചർച്ച എത്രയും വേഗം പൂർത്തിയാക്കാൻ ശ്രമം തുടരുകയാണ് കെപിസിസി തെരഞ്ഞെടുപ്പ് കമ്മറ്റി യോഗവും സിപിഐ സംസ്ഥാന നിർവ്വാഹക സമിതി യോഗവും രാവിലെ തിരുവനന്തപുരത്ത് ചേരുന്നുണ്ട് രുമ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയിലൂടെ ഇന്ത്യ ഇന്ന് ലോകം മുഴുവൻ അംഗീകരിക്കുന്ന ശക്തിയായി മാറിക്കഴിഞ്ഞുവെന്ന് കർണാടക ഉപമുഖ്യമന്ത്രി അശ്വന്ത് നാരായണൻ പറഞ്ഞു ബിജെപി മുന്നോട്ട് വെയ്ക്കുന്ന ആശയങ്ങൾക്ക് കേരളത്തിൽ വലിയ സ്വീകാര്യതയാണ് ലഭിക്കുന്നതെന്ന് അദ്ദേഹം അവകാശപ്പെട്ടു ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ നയിക്കുന്ന വിജയയാത്രയുടെ തൊടുപുഴയിൽ നടന്ന പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം വിജയയാത്ര ഇന്ന് കോട്ടയം ജില്ലയിൽ പ്രവേശിക്കും രാവിലെ ഇടുക്കിയിൽ നിന്നും കുറവിലങ്ങാടെത്തുന്ന വിജയയാത്ര വൈകീട്ട് കോട്ടയത്ത് സമാപിക്കും കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനി സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യും

ഇവിടങ്ങളിൽ ത്രിതല സുരക്ഷാ സംവിധാനം ഒരുക്കുമെന്ന് ജില്ലാ പൊലീസ് മേധാവി അറിയിച്ചു

എഫും ആന്റി നക്സൽ ഫോഴ്സും സുരക്ഷയ്ക്ക് ഉണ്ടാകും രണ്ട് കമ്പനി കേന്ദ്രസേന ഒരാഴ്ച്ചക്കകം എത്തും തെരഞ്ഞെടുപ്പ് അടുത്താൽ കൂടുതൽ കമ്പനികൾ എത്തുമെന്നും അദ്ദേഹം പറഞ്ഞു രംഭ ആദ്യ ഡോസ് വാക്സിൻ ഇതുവരെ എടുത്തിട്ടില്ലാത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് നിയമിക്കാവുന്ന പത്തനംതിട്ട ജില്ലയിലെ എല്ലാ ഉദ്യോഗസ്ഥരും തൊട്ടടുത്ത വാക്സിനേഷൻ കേന്ദ്രത്തിലെത്തി കോവിഡ് വാക്സിൻ എടുക്കണമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു നാളെ വരെയാണ് വാക്സിൻ സ്വീകരിക്കാൻ അവസരം രും തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് കോഴിക്കോട് ജില്ലാ മെഡിക്കൽ ഓഫീസും എൻ എച്ച്

ഗവൺമെന്റ് ജീവനക്കാരും ആരോഗ്യ പ്രവർത്തകരുമുൾപ്പെടെയാണ് ടാഗോർ ഹാളിൽ നടക്കുന്ന ക്യാമ്പിൽ വാക്സിൻ എടുത്തത് ക്യാമ്പ് ഇന്നും നാളെയും തുടരും രുര തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർക്ക് ഇന്ന് നടത്താനിരുന്ന പരിശീലന ക്ലാസും കോവിഡ് പ്രതിരോധ കുത്തിവെയ്പ്പും മാർച്ച് അഞ്ചിന് നടത്തുമെന്ന് കൊല്ലം ജില്ലാ കല്കടർ അറിയിച്ചു രും നിയമസഭാ തെരഞ്ഞെടുപ്പ് പരിസ്ഥിതി സൌഹൃദമായി നടപ്പിലാക്കുന്നതിന് മുഴുവൻ രാഷ്ട്രീയ കക്ഷികളുടേയും സഹകരണമുണ്ടാകണമെന്ന് കോഴിക്കോട് ജില്ലാ കലക്ടർ സാംബശിവ റാവു പറഞ്ഞു വിവിധ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികളുടെ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം

ഇലക്ഷൻ ഫ്ളയിംഗ് സ്ക്വാഡുകളെയും സ്റ്റാറ്റിക് സർവൈലൻസ് ടീമുകളെയുമാണ് നിയമസഭാ മണ്ഡലാടിസ്ഥാനത്തിൽ ജില്ലയിൽ നിയോഗിച്ചിരിക്കുന്നത് രുമ കണ്ണൂർ ജില്ലയിലെ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി കെ

ശശിധരൻ

ഡി എഫും കൂടുതൽ സീറ്റുകൾ നേടാനാവുമെന്ന പ്രതീക്ഷയിൽ യു ഡി എഫും മികച്ച സ്ഥാനാർഥികളെ മത്സരിപ്പിക്കാനുള്ള ഒരുക്കത്തിലാണ് എല്ലാ മണ്ഡലങ്ങളിലും വലിയ മുന്നേറ്റമുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് എൻ

കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ ഉണ്ടായ വോട്ട് വിഹിതത്തിലെ വർധനയും ബി ജെ

നേതൃത്വം നൽകുന്ന എൻ ഡി

ഡി എഫും മൂന്നിൽ യു ഡി

കണ്ണൂർ കല്ല്യാശ്ശേരിതളിപറമ്പ്പയ്യന്നൂർ മട്ടന്നൂർ കൂത്തുപറമ്പ് തലശ്ശേരി ധർമ്മടം എന്നീ മണ്ഡലങ്ങളിലാണ് എൽ ഡി

അഴീക്കോട് ഇരിക്കൂർ പേരാവൂർ മണ്ഡലങ്ങൾ യു

രണ്ട് തവണ വിജയിച്ചവരെ വീണ്ടും മത്സരിപ്പിക്കേണ്ടെന്ന ചർച്ചകളും അണിയറയിൽ നടക്കുന്നുണ്ട് രും പശ്ചിമ ബംഗാളിലും അസമിലും ഒന്നാംഘട്ട നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇന്ന് വിജ്ഞാപനം പുറപ്പെടുവിക്കും

പശ്ചിമ ബംഗാളിൽ എട്ടും അസമിൽ മൂന്നും ഘട്ടങ്ങളായാണ് വിധിയെഴുത്ത് രുഭ സംസ്ഥാനത്ത് കോവിഡ് രോഗബാധിതരുടെ എണ്ണത്തിൽ ഗണ്യമായ കുറവ്

രംഭ പ്രഥമ ഇന്ത്യ കളിപ്പാട്ട മേള ഇന്ന് സമാപിക്കും

ആദ്യ വെർച്വൽ കളിപ്പാട്ട മേള മികച്ച തുടക്കമാണെന്നും കളിപ്പാട്ട വ്യവസായത്തിന് ഇത് കൂടുതൽ ഉത്തേജനം നൽകുമെന്നും കേന്ദ്ര ടെക്സ്റ്റൈൽസ് സെക്രട്ടറി യു

രും വിജയ്ഹസാരെ ഏകദിന ക്രിക്കറ്റ് ടൂർണമെന്റിൽ കേരളം ക്വാർട്ടർ ഫൈനലിൽ ബെംഗളൂരുവിൽ ഇന്നലെ നടന്ന മത്സരത്തിൽ ഡൽഹി എട്ട് വിക്കറ്റിന് രാജസ്ഥാനെ തോൽപ്പിച്ചെങ്കിലും റൺറേറ്റിൽ കേരളത്തേയും ഉത്തർപ്രദേശിനേയും മറികടക്കാനായില്ല ഇതോടെ എലീറ്റ് ഗ്രൂപ്പുകളിൽ ആറാം സ്ഥാനക്കാരായി ഉത്തർപ്രദേശും ഏഴാം സ്ഥാനക്കാരായി കേരളവും ക്വാർട്ടറിൽ പ്രവേശിക്കുകയായിരുന്നു ഈ മാസം എട്ടു മുതൽ ഡൽഹിയിലാണ് ക്വാർട്ടർ മത്സരം രുര പാലക്കാട് നടക്കുന്ന കേരള രാജ്യാന്തര ചലച്ചിത്ര മേളയിലെ ഓപ്പൺ ഫോറത്തിനു ഇന്നു തുടക്കമാകും ചലച്ചിത്ര മേളകളും ഫിലിം സൊസൈറ്റി പ്രസ്ഥാനവും എന്ന വിഷയത്തിലാണ് ആദ്യ ദിനത്തിലെ സംവാദം

എസ് ആർ ടി സി

വ്യാപാരസ്ഥാപനങ്ങൾ തുറക്കുമെന്ന് കേരള വ്യാപാരി വ്യവസായി ഏകോപനസമിതി അറിയിച്ചു

രുമ ഇന്ന് നടത്താനിരുന്ന വിവിധ പരീക്ഷകൾ വാഹന പണിമുടക്കിനെ തുടർന്ന് മാറ്റി

എച്ച്

സി പ്ലസ്ടു വി എച്ച്

ഇ മോഡൽ പരീക്ഷകൾ മാർച്ച് എട്ടിലേക്ക് മാറ്റി എട്ടിന് നടത്താനിരുന്ന ടി എച്ച്

സി പരീക്ഷ ഒൻപതിന് നടക്കും കേരള കാലിക്കറ്റ് എംജി കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലകളും പരീക്ഷകൾ മാറ്റി

ആരോഗ്യശാസ്ത്ര സർവകലാശാലയുടെ മൂന്നാംവർഷ എം

സി മെഡിക്കൽ ഫിസിയോളജി ഡിഗ്രി സപ്ലിമെന്ററി പരീക്ഷ ആറിലേക്ക് മാറ്റി രും ആഴക്കടൽ മത്സ്യബന്ധന വിഷയത്തിൽ ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെട്ട് ടി എൻ പ്രതാപൻ എംപിയുടെ നേതൃത്വത്തിൽ യുഡിഎഫ് വടക്കൻ മേഖലാ തീരദേശ ജാഥ കാസർകോട്ട് തുടങ്ങി

ഷിബു ബേബി ജോൺ നയിക്കുന്ന യുഡിഎഫ് ദക്ഷിണ മേഖലാ തീരദേശ ജാഥക്ക് ഇന്ന് വൈകീട്ട് നെയ്യാറ്റിൻകരയിൽ തുടക്കമാകും കെ പി സി സി പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും രും ഗുരുവായൂർ ഉത്സവത്തോടനുബന്ധിച്ചു ക്ഷേത്രദർശനത്തിനും പഴുക്കാമണ്ഡപ ദർശനത്തിനും കൂടുതൽ പേർക്ക് പ്രവേശനം അനുവദിച്ചു

തിരക്കില്ലാത്ത സമയങ്ങളിൽ ബുക്കിംഗ് ഇല്ലാതെ വരുന്ന ഭക്തർക്ക് തിരിച്ചറിയൽ കാർഡ് വിവരങ്ങൾ രേഖപ്പെടുത്തിയും ക്ഷേത്രത്തിൽ പ്രവേശിക്കാൻ അനുമതി നൽകും പഴുക്കാമണ്ഡപ ദർശനത്തിന് സമയം ഒന്നരമണിക്കൂറായി വർദ്ധിപ്പിച്ചു